ശബരിമല യുവതീ പ്രവേശ്നു വീഷയത്തിൽ ദേവസ്വം കമ്മീഷണറോട് വിശദീക്രണം് തേടിയിട്ടില്ലെന്ന് ദേവസ്വം ബോർഡ് അധ്യക്ഷൻ

കണ്ണൂർ ജില്ലയിലെ മുഴുവൻ പഞ്ചായത്തുകളും അഴിമതി രഹിതമായി പ്രഖ്യാപിച്ചു സന്തോഷ് ട്രോഫി ഫുട്ബോളിൽ യോഗൃതാ റൌണ്ട് കടക്കാതെ കേരളം പുറത്ത്

നിരവധിപേർ ഗുരുതരാവസ്ഥയിൽ ആശുപത്രിയിൽ ചികിത്സയിലാണ്

വൈറോളജി ഇൻസ്റ്റിട്യൂട്ട് ഇൻട്രോ രോഗ നിർണയത്തിനും പ്രതിരോധ പ്രവർത്തനങ്ങൾ സമയബന്ധിതമായി നടത്തുന്നതിനുമുള്ള അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള വൈറോളജി ഇൻസ്റ്റിട്യൂട്ടിന്റെ ഉദ്ഘാടനം മുഖ്യമന്ത്രി പിണറായി വിജയൻ നാളെ നിർവ്വഹിക്കും

കൂടുതൽ വിവരങ്ങളുമായി ലക്ഷ്മിശ്രീ വിജയ വോയിസ് മാരക വൈറസുകളെ സ്ഥിരീകരിക്കുന്നതിനും പുതിയ വൈറസുകളെ പെട്ടെന്ന് തിരിച്ചറിഞ്ഞ് പ്രതിവിധി സ്വീകരിക്കാനും ഇൻസ്റ്റിറ്റ്യൂട്ട് യാഥാർത്ഥ്യമാകുന്നതോടെ സാധിക്കും വിസ്തീർണത്തിൽ അത്യാധുനിക സൌകര്യങ്ങളുള്ള മന്ദിരമാണ് ഇൻസ്റ്റിറ്റ്യൂട്ടിനായി ആസൂത്രണം ചെയ്തിട്ടുള്ളത്

രോഗനിർണയവും ഗവേഷണ് വും ലക്ഷ്യമിടുന്ന കേന്ദ്രം രാജ്യത്തെ രണ്ടാമത്തെ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ്

ജനങ്ങൾക്ക് നേരിട്ടും പ്രസ്മ്പിളുകൾ പരിശോധനയ്ക്ക് നൽകാൻ സാധിക്കും വൈറസ് പ്രതിരോധ മരുന്ന് നിർമ്മാണവും കേന്ദ്രത്തിന്റെ ലക്ഷ്യമാണ് കൂടാതെ അന്താരാഷ്ട്ര ഏജൻസിയായ ഗ്ലോബൽ വൈറൽ നെറ്റ് വർക്കിന്റെ സെന്റർ കൂടി ഈ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പ്രവർത്തനം ആരംഭിക്കും

ന്യൂസ് ഡെസ്ക് ആകാശവാണി എ പത്മകുമാർ ശബരിമല യുവതീപ്രവേശന വിഷയത്തിൽ സുപ്രീംകോടതിയിൽ സ്വീകരിച്ച നിലപാടുമായി ബന്ധപ്പെട്ട് ദേവസ്വം കമ്മീഷണറോട് വിശദീകരണം തേടിയിട്ടില്ലെന്ന് ദേവസ്വം ബോർഡ് അധ്യക്ഷൻ എ പത്മകുമാർ വിഷയവുമായി ബന്ധപ്പെട്ട് അധ്യക്ഷ സ്ഥാനം രാജിവയ്ക്കില്ലെന്നും വൃക്തമായ അഭിപ്രായമുണ്ടെന്നും അതിൽ ഉറച്ച് നിൽക്കുന്നതായും അദ്ദേഹം പറഞ്ഞു സുപ്രിം കോടതി വിധിയുടെ മറവിൽ ചിലർ ബോധപുർവ്വം ആശയക്കുഴപ്പം ഉണ്ടാക്കാനും പ്രശ്നങ്ങൾ സൃഷ്ടിക്കാനും ശ്രമിക്കുകയാണ്

താൻ പറഞ്ഞ കാര്യിങ്ങൾ വളച്ചൊടിച്ച് മാധ്യമങ്ങൾ പ്രചരിപ്പിക്കുകയാണെന്നും വിഷയത്തിൽ റിവ്യൂ ഹർജ്ജിയിൽ സുപ്രിം കോടതിയുടെ വിധി എന്താണോ അത് നടപ്പാക്കാൻ ബ്ബോർഡ് ബാധ്യസ്ഥമാണ്

ശബരിമല കോടിയേരി അതേസമയം സാവകാശ ഹർജി സംബന്ധിച്ച് ദേവസ്വംബോർഡിൽ ആശയക്കുഴപ്പമില്ലെന്ന് സി പി ഐ എം സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ ശ്രീ പത്മകുമാറിന്റെ പ്രസ്താവന മാധ്യമങ്ങൾ വളച്ചൊടിച്ചതാണെന്നും സാവകാശ ഹർജിയുടെ പ്രസക്തി ശബരിമല സീസൺ കഴിഞ്ഞതോടെ നഷ്ടമായെന്നും ശ്രീ കോടിയേരി ബാലകൃഷ്ണൻ

ബിജെപി ക്ഷേത്രങ്ങളുടെയും ക്ഷേത്ര ഭരണത്തിന്റെയും ദൈനംദിന കാര്യങ്ങളിൽ ഗവൺമെന്റ് ഇടപെട്ടാൽ ശു്രൂർരമായ പ്രത്യാഘാതങ്ങൾ നേരിടേണ്ടി വരുമെന്ന് ബിജെപി സ്റ്റ്സ്മാന വക്താവ് എം

ഏത് സാഹ്ചര്യത്തിലാണ് ദേവസ്വം കമ്മീഷണറെയും റിക്രൂട്ട്മെന്റ് ബോർഡ് ചെയർമാനെയും ശബരിമല വിഷയം സംബന്ധിച്ച് സൂപ്രീംകോടതി മുൻപാകെയുള്ള കേസിൽ ഇടപെടുന്നതിന് ഡൽഹിയിൽ പോകാൻ ചുമതലപെടുത്തിയതെന്ന് ഗവൺമെന്റ് വെളിപ്പെടുത്തണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു അതിനായി നടത്തിയ ഡൽഹി യാത്രയുടെ ചെലവുകൾ ആര് വഹിച്ചു എന്നും അറിയിക്കണം ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആത്മാഭിമാനമുണ്ടെങ്കിൽ ഇനിയെങ്കിലും രാജി എഴുതികൊടുക്കാനുള്ള ആർജ്ജവം കണിക്കണമെന്നും ശ്രീ കുമാർ ആവശ്യപ്പെട്ടു കുംഭ മാസ പൂജകൾക്ക് നട തുറക്കാൻ ഇനി ഒരാഴ്ച്ച മാത്രമുള്ളപ്പോൾ ശബരിമലയിലെ സ്ഥിതി കൂടുതൽ സങ്കീർണമാക്കാനാണ് ഗവൺമെന്റ് നീക്കമെന്നും ബിജെപി വക്താവ് ആരോപിച്ചു സ്ഥാനാർഥി നിർണയം സംബന്ധിച്ചുള്ള ഒരു തീരുമാനവും പാർട്ടി കൈകൊണ്ടിട്ടില്ലെന്നും മാധ്യമ റിപ്പോർട്ടുകൾ ഭാവനാ സൃഷ്ടി മാത്രമാണെന്നും അദ്ദേഹം ചോദ്യത്തിന് മറുപടി നൽകി

ഇതിന്റെ ഭാഗമായി സംസ്ഥാനത്തെ വിവിധ കേന്ദ്രങ്ങളിൽ പ്രതിഷ്ടധി പ്രികടനവും നടത്തി

സെസ്സിലെ ശാസ്ത്രജ്ഞനായ ടി

പ്രകാശിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് വിവരശേഖരണം നടത്തുന്നത് ആലപ്പാട് ഖനനമേഖലയിലെ അവശേഷിക്കുന്ന പ്രശ്നങ്ങൾ ചർച്ച ചെയ്യുന്നതിന് കലക്ടർ ചെയർമാനായ പ്രത്യേക സമിതിയും ഗവൺമെന്റ് രൂപീകരിച്ചിട്ടുണ്ട്

കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കൊല്ലം പ്രതിനിധി നീരജ് ലാൽ

വൈകിട്ട് കണ്ണൂരിൽ നടന്ന ചടങ്ങിൽ മന്ത്രി

മൃതദേഹം പൊതുദർശനത്തിനു വച്ച ചവറ ശങ്കരമംഗലം കേരള നാട്യധർമ്മി നൃത്തകലാകേന്ദ്രത്തിലും ചവറ ബോയ്സ് ഹൈസ്കൂളിലും നിരവധിപ്പേർ അന്തിമോപചാരം അർപ്പിച്ചു

തിരിച്ചുപിടിച്ചപ്പോൾ നിയമ തൂടസ്സ്ങ്ങളുണ്ടായില്ലെന്ന കാര്യവും നിയമനിർമ്മാണം ഏറ്റെടുക്കാവുന്നതാണെന്ന നിയമോപദേശത്തിൻറെ പ്രകാര്യവും യുഡിഎഫ് ഭരണകാലത്തെ എൽഡിഎഫ് നിലപാടും ശ്രീ

ഇക്കോ ടൂറിസം തിരുവനന്തപുരം തെന്മല വനം ഡിവിഷനിലെ പാലരുവി ഇക്കോ ടൂറിസം കേന്ദ്രത്തിലേക്കുള്ള സന്ദർശകരുടെ പ്രവേശനം താൽക്കാലികമായി നിരോധിച്ചു വെള്ളച്ചാട്ടത്തിലെ നീരൊഴുക്ക് നിലച്ചതിനാലും കാട്ടുതീ സാധ്യതയുള്ളതിനാലുമാണ് നിരോധനമെന്ന് തെന്മല ഡി എഫ് ഒ എ പി സുനിൽബാബു അറിയിച്ചു

ഗ്രൂപ്പ് ബിയിൽ മൂന്ന് മത്സരങ്ങളിൽ രണ്ട് ഗോൾ രഹിത സമനിലയും ഒരു തോൽവിയുമടക്കമാണ് കേരളം പുറത്താകുന്നത്

മറുപടി ബാറ്റിംഗിനിറങ്ങിയ ഇന്ത്യ മൂന്ന് വിക്കറ്റ് നഷ്ടത്തിൽ ലക്ഷ്യം കാണുകയായിരുന്നു